വാർത്തകൾ വിശദമായി രാജ്യത്ത് അൺലോക്ക് രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കും

കർശന നിയന്ത്രണങ്ങളാണ് ഈ സോണിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് രുദ കണ്ടെയിൻമെന്റ് സോണുകളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറി ഡോ

കണ്ടെയിൻമെന്റ് സോണുകളിൽ രോഗവ്യാപനം തടയുന്നതിന് ആവശ്യമെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് അദ്ദേഹം ജില്ലാ കലക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്

രേര മാഹിയിൽ ഒരു പോലീസുകാരനും നാല് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്നലെ കോവിഡ് രോഗം സ്ഥിരീകരിച്ചു മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർക്കും പള്ളൂർ പോലീസ് സ്റ്റേഷനിലെ ബീറ്റ് ഓഫീസർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം റാൻഡം പരിശോധനയുടെ ഭാഗമായി വിവിധ മേഖലകളിലെ അമ്പതോളം പേരുടെ സ്രവം പരിശോധനയ്ക്കായി എടുത്തിരുന്നു

മൂന്നു പേർ വിദേശത്തു നിന്നു വന്നവരാണ്

എഫ് ജവാന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും അവർക്ക് ആശ്വാസം പകരുന്നതിനുമായി മുതിർന്ന സി

എഫ് ഓഫീസറെ കണ്ണൂരിലേയ്ക്ക് ഉടൻ അയയ്ക്കുമെന്ന് സി

കണ്ണൂരിൽ സി ഐ

എഫ് ജവാൻമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമായി അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ സി ഐ എസ് എഫ് ഡയറക്ടർ ജനറലിനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദേശപ്രകാരമാണ് സംസ്ഥാന പോലീസ് മേധാവി സി ഐ

എഫ് ഡയറക്ടർ ജനറലിനെ ഫോണിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചത്

ഐ ജി കെ സേതുരാമൻ എസ് പി ജി എച്ച് യതീഷ്ചന്ദ്ര എന്നിവർ ഉടൻതന്നെ കണ്ണൂർ വിമാനത്താവളവും സി ഐ എസ്

ബാരക്കുകളും വിമാനത്താവളവും ബാരക്കുകളും അണുവിമുക്തമാക്കുന്ന പ്രക്രിയയ്ക്ക് ഇവർ നേതൃത്വം നൽകും സംസ്ഥാനത്ത് സി

എസ് എഫ് ജവാന്മാരുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു രുമ പുതുതായി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ ഏഴോം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് കൂടി കണ്ടെയിൻമെന്റ് സോണായി ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചു നേരത്തേ പൂർണമായി അടച്ചിട്ടിരുന്ന പടിയൂർ കല്യാട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കി ദേദ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മൂന്നാലിങ്കൽ ചക്കുംകടവ് വെള്ളയിൽ വാർഡുകൾ കണ്ടെയ്മെന്റ് സോണുകളായി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചു ട്രക്ക് ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ കമ്പിളിപ്പറമ്പ് വാർഡിനേയും കണ്ടെയ്മെന്റ് സോണാക്കി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രതപാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

രുഭ തിരുവനന്തപുരം നഗരത്തിൽ പുതുതായി കണ്ടെയിൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പൌണ്ട്കടവ് വാർഡിൽ ശക്തമായ സുരക്ഷാക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ഐ ജി ബൽറാം കുമാർ ഉപാധ്യായ അറിയിച്ചു ജാഗ്രതാ നിർദേശങ്ങൾ പ്രദർശിപ്പിക്കാത്ത കടകൾക്കെതിരെ ഇന്ന് മുതൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരത്തിൽ രോഗവ്യാപനം വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊലീസ് പരിശോധന കർശനമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ദേദ ഓഫീസ് ജീവനക്കാരന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് താനൂർ വില്ലേജ് ഓഫീസ് അടച്ചു

രുദ എറണാകുളം മാർക്കറ്റിലെ വ്യാപാരികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ മുതൽ പ്രസ്ക്ലബ്ബ് റോഡ് വരെ എറണാകുളം മാർക്കറ്റിലെ ഭാഗങ്ങൾ അടയ്ക്കും നേരത്തെ രോഗം സ്ഥിരീകരിച്ച ഇലക്ട്രിക്കൽ സ്ഥാപനത്തിലെ ജോലിക്കാരന്റെ സഹപ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ച സഹാചര്യത്തിലാണ് നടപടി മാർക്കറ്റിൽ കോവിഡ് ലക്ഷണങ്ങൾ ഉള്ള എല്ലാവരുടേയും സാമ്പിളുകൾ ശേഖരിക്കാനും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരിൽ റാൻഡം പരിശോധന നടത്താനും ജില്ലാ കലക്ടർ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദേശം നൽകി ദരര പൊന്നാനിയിലെ ക്ഷയരോഗാശുപത്രി കോവിഡ് പരിശോധനാ കേന്ദ്രമാക്കി മാറ്റുന്നതിന് നടപടി ആരംഭിച്ചു ഇതിനു മുന്നോടിയായി ക്ഷയരോഗ പരിശോധന പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി

രുമ കേരള ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ വ്യവസായ പാർക്കുകളിൽ നിക്ഷേപം നടത്തിയ സംരംഭകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി ഇ

ചെറുകിട വ്യവസായികളുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കാണ് സംസ്ഥാനത്ത് സാധ്യത കൂടുതലെന്നും നിരവധി തൊഴിലവസരങ്ങളും ഈ മേഖലയിൽ സ്വഷ്ടിക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു

രുമ ധനബിൽ പാസ്സാക്കുന്നതിന് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇന്ന് കക്ഷിനേതാക്കളുടെ കോവിഡ് പശ്ചാത്തലത്തിൽ യോഗം ചേരും

രുമ യു ഡി എഫ് യോഗം ഇന്ന് മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗത്തെ പുറത്താക്കിയതിന് ശേഷമുള്ള ആദ്യയോഗമാണ് ഇന്ന് ചേരുന്നത് വിഡിയോ കോൺഫറൻസിലൂടെ ചേരുന്ന യോഗത്തിൽ ജോസ് കെ മാണി വിഭാഗവുമായി തുടർചർച്ച നടത്തുന്ന കാര്യത്തിൽ ധാരണയുണ്ടാകും രുര ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം വൈദ്യശാസ്ത്രരംഗത്ത് മികച്ച സേവനങ്ങൾ നൽകി ചരിത്രം കുറിച്ച ഡോ

വെല്ലുവിളികൾ അതിജീവിച്ച് നിസ്വാർത്ഥ സേവനത്തിലൂടെ നാടിന്റെ പുരോഗതിക്കായി നിരന്തരം പോരാടുന്ന എല്ലാ ഡോക്ടർമാർക്കും ഗവൺമെന്റും ആരോഗ്യവകുപ്പും ആദരമർപ്പിച്ചു രുദ ഇന്ന് വിള ഇൻഷൂറൻസ് ദിനം സംസ്ഥാനത്തെ എല്ലാ കർഷകരേയും വിള ഇൻഷൂറൻസ് പദ്ധതിയിൽ അംഗങ്ങളാക്കുന്നതിന് കൃഷി വകുപ്പ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജൂലൈ ഒന്ന് വിള ഇൻഷുറൻസ് ദിനമായി ആചരിക്കുന്നത്

കർഷകർക്ക് ഓൺലൈനായി ഈ പദ്ധതിയിൽ ചേരുന്നതിനും പോളിസി കരസ്ഥമാക്കാനും കഴിയും

താഴ്ചയിലേക്ക് മറിഞ്ഞ ലോറിയിൽ നിന്നും വാതകം ചോരുന്നുവെന്ന സംശയത്തെ തുടർന്ന് അധികൃതർ നടപടി ആരംഭിച്ചു

ദരദ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഈ മാസം നാലു വരെ തുടരുമെന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടറേറ്റ് അറിയിച്ചു

ജില്ലാതല ഉദ്ഘാടനം വടകരയിൽ സി കെ നാണു എം

എ കൈമാറി